സ്വാമിത്വ പദ്ധതി ഗ്രാമീണ ഇന്ത്യയെ സ്വാശ്രയരാക്കുകയും ഗ്രാമപഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ത്യ ഉയർന്ന കോവിഡ് രോഗമുക്തിയുള്ള് രാജ്യമെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രാലയം ലോകത്തെ ക്കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത്

ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ പുരോഗമിക്കുന്നു ഏറ്റുമുട്ടുന്നത് ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചും രണ്ടാം നമ്പർ താരം റാഫേൽ നദാലും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

പദ്ധതി ആത്മനിർഭർ ഭാരതത്തിൻറെ മറ്റൊരു ചുവടുവയ്പ്പാണെന്നും പ്രോപ്പർട്ടി റെക്കോർഡുകൾ ഉടമകൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനു കാരണമാകുമെന്നും ശ്രീ മോദി പറഞ്ഞു വിശദാംശങ്ങളുമായി അരവിന്ദ് സ്വമിത്വ പദ്ധതി ഗ്രാമീണ ഇന്ത്യയിലെ ജനങ്ങളെ സ്പാശ്രയരാക്കുകയും ഗ്രാമപഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുകയൂട് പ്രെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇതുവഴി സ്വയം തൊഴിൽ തേട്ടുന്നവർക്കും സംരംഭകർക്കും പുതിയ സാധ്യതകൾ തെളിയും സ്വന്തം സ്മ്പത്തീന് രേഖ ഉണ്ടാകുകയും സമ്പത്തിൽ അധികാരം ലഭിക്കുകയും ചെയ്യൂമ്പോൾ സാമ്പത്തിനൊപ്പം വ്യക്തിയുടെ ജീവിതവും സുരക്ഷിതമാകുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ സ്വത്തുക്കൾക്ക് രേഖ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിലൂടെ ഗ്രാമീണർക്ക് തങ്ങളുടെ വസ്തുവിൻറെ കൊടുക്കൽ വാങ്ങലുകൾ എളുപ്പത്തിൽ നടത്താനാകും ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുന്നതിനും മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നേടുന്നതിനുമുള്ള ആസ്തി രേഖയായി സ്വത്ത് കാർഡുകൾ ഉപയോഗിക്കാനാകും രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും പ്രോപ്പർട്ടി കാർഡുകളുടെ വിതരണം സർക്കാർ ഉറപ്പാക്കുമെന്ന് ശ്രീ മോദി അറിയിച്ചു മധ്യപ്രദേശ് യുപി ഹരിയാന ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര കർണാടക എന്നിവിടങ്ങളിലെ ഗുണഭോക്താക്കളുമായി സംവദിച്ച പ്രധാനമന്ത്രി പ്രോപ്പർട്ടി കാർഡ് ജീവിതനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്

ഭൂരിഭാഗവും നക്സൽ ബാധിത മേഖലകളായതിനാൽ പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്

ജെ

മന്ത്രി നന്ദ് കിഷോർ യാദവ് എം

നിതിൻ നവീൻ മുൻ എം

ഓം പ്രകാശ് യാദവ് നിതീഷ് മിശ്ര എന്നിവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്

ഇത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൻറെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പതിനൊന്നു മണിക്ക് നിർവഹിക്കും കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് ഹൈടെക് സ്മാർട് ക്ലാസ് പദ്ധതി യാഥാർഥ്യമാക്കിയത്

ഈ ബാലികാ ദിനത്തിൽ ബേഠി ബച്ചാവോ ബേഠി പഠാവോ എന്ന നയത്തോടുള്ള നമ്മുടെ പ്രതിബ്ദ്ധ്ത ഊട്ടിയുറപ്പിക്കണമെന്ന് കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനി ആവശ്യപ്പെട്ടു പെൺകുട്ടികളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി കെ

സംസ്ഥാന വനിത ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ബാലികാ ദിനാചരണത്തിൻറെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

അതിനിടെ ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ പോളിഷ് കൌമാരതാരം ഈഗ ഷ്യാൻടെക് കന്നി കിരീടം സ്വന്തമാക്കിയിരുന്നു

രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപ്പിറ്റൽസ് ബാറ്റിംഗ് തെര്ഞ്ഞെടുത്തു മത്സരം പുരോഗമിക്കുകയാണ്

ക്ലേസ് അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘം രൂപീകരിച്ചതായി സിബിഐ പ്രസ്താവനയിൽ വ്യക്തമാക്കി കേസ് സിബിഐ ഏറ്റെടുക്കണമെന്ന യുപി സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം കേന്ദ്രസർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയായിരുന്നു

ഇത് സംബന്ധിച്ചു മാർഗനിർദേശം യുപി സർക്കാർ ഇന്നലെ പുറത്തിറക്കി